സി

കേരളത്തിൽ നിയമസഭാ ത്ത്രെഞ്ഞെടുപ്പ് തീയതി ന് നിശ്ചയിക്കുന്നതിന് ആഘോഷ്ടങ്ങളും പരീക്ഷാ നടത്തിപ്പും പരിഗണിക്കുമെന്ന് മുഖ്യൂ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ

ഒരു ഗോളിന് ജംഷഡ്പൂരിനെ തോൽപ്പിച്ചു

വരും തലമുറക്ക് വേണ്ടിയുളള അടിസ്ഥാന സൌകര്യ വികസനമാണ് രാജ്യം ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അടിസ്ഥാന സൌകര്യ വികസനമെന്നാൽ റോഡുകൾ നിർമിക്കുക മാത്രമല്ല

കൊച്ചി ബി

സി എല്ലിന്റെ പ്രൊപ്പലിൻ ഡെറിവേറ്റീവ് പെട്രോ കെമിക്കൽ കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള പദ്ധുതികൾ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഏപ്പ്പ്പലിൻ ഡെറിവേറ്റീവ് പെട്രോ കെമിക്കൽ പദ്ധതി ഉത്പാദന ക്ഷ്മമാകുന്നതോടെ ഇറക്കുമതിയ്ക്കായി പ്രതിവർഷം ചെല്ലുവിട്ടുന്ന നാലായിരം കോടിയോളം രൂപ ലാഭിയ്ക്കാനാവുമെന്ന് ശ്രീ

സ്വയം പര്യാപ്ത ഭാരതം കെട്ടിപ്പടുക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് അദ്ദേഹം സംസ്ഥാന സർക്കാറിനോട് അഭ്യൂർത്ഥിച്ചു ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ രാജ്യത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെയും വ്യവസായ വളർച്ചയ്ക്ക് കരുത്തു പകുരും ്കൊച്ചി മെട്രോയ്ക്ക് ഉൾപ്പെടെ കേന്ദ്രം തുക വകയിരുത്തിയിട്ടുണ്ടെ്ന്നും ശ്രീ

വെല്ലിംഗ്ടൺ ദ്വീപിലെ റോ റോ വെസലുകൾക്ക് പുറമേ കൊച്ചി തുറമുഖത്തെ അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനൽ സാഗരിക കൊച്ചി കപ്പൽശാലയിലെ നോളജ് ആന്റ് സ്കിൽ ഡെവലപ്പ്മെന്റ് സെന്ററും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു തുറമുഖത്ത് ദക്ഷിണ കൽക്കരി ബർത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും ശിലാസ്ഥാപനവും ശ്രീ മോദി നിർവ്വഹിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിച്ചതിലൂടെയാണ് വികസന പദ്ധതികൾ പൂർത്തീകരിക്കാനാ യതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രമന്ത്രിമാരായ വി

നിലവിൽ ഒരു മത്സ്യത്തൊഴിലാളി പോലും ശ്രീലങ്കയിൽ തടവിലില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഏപ്രിൽ ർണ്ടാ്ം വാരത്തിനു മുന്നോടിയായി തിരഞ്ഞെടുപ്പ് നടത്ത്ാന്റാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കോവിറ്റു് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചായിരിക്കും തെരഞ്ഞെടുപ്പെന്നും സർക്കാരും വിവിധ പാർട്ടികളുമായി നടത്തിയ ക്ടൂടിക്കാഴ്ചയ്ക്കൊടുവിൽ അറോറ വൃക്തമാക്കി

ഏപ്രിലിൽ തിരഞ്ഞെടുപ്പ് വേണമെന്നാണ് യുഡിഎഫിന്റെയും ആവശ്യം മേയിൽ വേണം തെരഞ്ഞെടുപ്പെന്ന് ബിജെപിയും ആവശ്യപ്പെട്ടു

ഫാസ് ടാഗ് മുദ്ര ഇല്ലാത്ത വാഹനങ്ങൾ ടോൾ ബൂത്തിലൂടെ കടന്നു പോകണമെങ്കിൽ ഇനി ഇരട്ടി നിരക്ക് നൽകേണ്ടി വരും

മാരകമായ ആയുധശേഖരം കൈവശം വച്ചതായി പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ് ബഡ്ഗാം മേഖലയിൽ അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി ഭീകരവാദികളെ ഉപയോഗിക്കുന്നതിൽ സജീവമായി പ്രവർത്തിക്കുന്ന രണ്ടുപേരാണ് അറസ്റ്റിലായതെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു

എല്ലാ വൈസ് ചാൻസലർമാർക്കും ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർമാർക്കും ഉത്തർപ്രദേശ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇതു സംബന്ധിച്ചു് അറിയിപ്പ് നൽകി

പ്രമുഖർ പങ്കെടുത്ത ചട്ട്ടിൽ വീഡിയോ കോൺഫറൻസിങ്ങലൂടെയ്ാണ് ശ്രീ ഗോയൽ ഉദ്ഘാടനം നിർവ്വഹിച്ചുത് മാവുവും ആനന്ദ് വിഹാറും ട്രെയിൻ മാർഗ്ഗം ബന്ധിപ്പിക്കുന്നതിലൂടെ പൂർവാഞ്ചലിലെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യമാണ് സഫലമാകുന്നതെന്ന് കേന്ദ്രമന്ത്രി വൃക്തമാക്കി മേഖലയുടെ സാമ്പത്തിക നിലവാരം ഇതിലൂടെ മെച്ചപ്പെടുമെന്നും ശ്രീ പിയൂഷ് ഗോയൽ പറഞ്ഞു

കഴിഞ്ഞ വർഷം ഡിസംബർ എട്ടിനാണ് ബ്രിട്ടനിൽ വാക്സിൻ വിതരണം ആരംഭിച്ചത് ഇത്രയധികം ജനങ്ങൾ വാക്സിൻ സ്വീകരിച്ചത് കോവിഡ് വാക്സ്ട്രിൻ യജ്ഞത്തിലെ നാഴികക്കല്ലാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പൂറഞ്ഞു

കഴിഞ്ഞ ഡിസംബറിൽ തന്നെ ജനിതകമാറ്റം വന്ന കൂടുതൽ കൊറോണ വൈറസുകളെ വുഹാനിൽ കണ്ടെത്തിയതായി പഠനസംഘത്തിന്റെ തലവൻ പീറ്റർ ബെൻ എംബാറക്ക് അറിയിച്ചു വുഹാനിൽ ആദ്യമായി രോഗം സ്ഥിരീകരിച്ച വൃക്തിയെയും ഇവർ സന്ദർശിച്ചു

ജന്മനാടായ ചെന്നൈയിലെ ചിദംബരം സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിവസമാണ് അശ്വിൻ റെക്കോർഡ് നേടിയത്

ടി കെ മോഹൻ ബഗാന് വീണ്ടും ജയം ജംഷഡ്പൂർ എഫ് സി യെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് ബഗാൻ പരാജയപ്പെടുത്തിയത്

ടി

കർശന കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടന്ന മേളയിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയെങ്കിലും മികച്ച ചിത്രങ്ങളുടെ പ്രദർശനങ്ങളാൽ സജീവമായിരുന്നു മേള

ഈ സാഹചരൃത്തിൽ വിവിധ വിദേശ രാജ്യങ്ങളിലെ മ്യാൻമാറിന്റെ അംബാസഡർമാർ മ്യാൻമാർ സൈന്യം അക്രമങ്ങളിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു